വികസന പദ്ധതികളെപ്പറ്റി ജനങ്ങളുടെ പ്രതികരണങ്ങൾ മന്ത്രിമാർ ആരാഞ്ഞു

പുതുതായി ആരംഭിക്കുന്ന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു

വികസന പദ്ധതികളുടെയും ക്ഷേമപദ്ധതികളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് സംബന്ധിച്ചും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും ജനപ്രതിനിധികൾ മന്ത്രിമാരുമായി പങ്കു വച്ചു

താഴ്വരയുടെ പുനരുജ്ജീവനത്തിനും നടപടി വഴിവയ്ക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു വരും വർഷങ്ങളിൽ വൻകിട വൃവസായ സംരംഭകർ ജമ്മുകാശ്മീരിൽ നടത്തുന്ന വൻ നിക്ഷേപം സംസ്ഥാനത്തെ വികസനപാതയിലേക്ക് നയിക്കുമെന്നും മന്ത്രിമാർ വൃക്തമാക്കി

പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ ക്രന്തിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് പരീക്ഷാ പ്പേ ചർച്ച സംവാദ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്

പരീക്ഷയുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ എങ്ങനെ മറികടക്കാമെന്നത് സംബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകും

മുമ്പും അയൽ രാജ്യങ്ങളിൽ നിന്നു കുടിയേറിയവർക്ക് പൌരത്വം നല്കാനായി ഭരണഘടനാ ഭേദഗതികൾ കൊ ു വന്നിട്ടു ് പുതിയ ഭേദഗതിമൂലം ഒരാൾക്ക് പോലും പൌരത്വം നഷ്ടമാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി

ഗോരഖ്പൂരിൽ പൌരത്വ ഭേദഗ്ലതി നിയമത്തെ അനുകൂലിച്ച് നടന്ന റാലിയെ അഭിസംബോധന അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ ബ്രംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ പീഡിത ന്യൂനപിക്ഷത്തിന് പൌരത്വം ഉറപ്പാക്കുകയാണ് നിയമമെന്നും അല്ലാതെ ആരുഭട്ടേയും പൌരത്വം നിഷേധിക്കുന്നതല്ലെന്നും ശ്രീ

നിയ്യമം ഒരു ഇന്ത്യൻ പൌരനും എതിരല്ല മറിച്ച് ഇന്ത്യൻ മണ്ണിലേയ്ക്ക് അനധികൃത്മായി കടന്നു കൂടിയവർക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു

ചീഫ് സെക്രട്ടറിയോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചതിലുള്ള അതൃപ്തി ഗവർണർ നേരത്തെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു

രാഷ്ട്രപതി ഭവനിൽ കുഞ്ഞുങ്ങൾക്ക് പോളിയോ പ്രതിരോധ മരുന്ന് നൽകികൊ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവ്വഹിച്ചത്

രാജ്യത്തുനിന്ന് പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

ഇതിൽ ഒരാൾ തടങ്കലിൽ മരിച്ചു

ഇവരുടെ മോചനത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൈജീരിയൻ ഗവൺമെന്റുമായി ചേർന്ന് നിരന്തരം പരിശ്രമിച്ചു വരികയായിരുന്നുവെന്ന് നൈജീരിയയിലെ ഇന്ത്യൻ സ്ഥാനപതി ട്വിറ്ററിൽ അറിയിച്ചു ഇവരെ വേഗത്തിൽ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ കമ്മീഷണർ പറഞ്ഞു

പത്രക്കടലാസ് മെഡിക്കൽ ഉപകരണങ്ങൾ മരത്തിൽ നിന്ന് ഉാക്കുന്ന പൾപ്പ് എന്നീ അസംസ്കൃത പദാർത്ഥങ്ങൾ ഇപ്പോൾ രാജൃം ഇറക്കുമതി ചെയ്യുകയാണ് ഇത്തരം പദാർത്ഥങ്ങൾ രാജൃത്തിന്റെ ആവശൃത്തിന് അനുസരിച്ച് നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കണമെന്നും മന്ത്രി പറഞ്ഞു

ദേശീയ കൺവീനറും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളാണ് ഗ്യാരന്റി കാർഡ് പുറത്തിറക്കിയത്

വിദ്യാർത്ഥികൾക്ക് സൌജന്യ ബസ് യാത്രയും പാവപ്പെട്ടവർക്ക് വീടും വാഗ്ദാനം ചെയ്തിട്ടു ്

പ്രതികൾക്ക് മാപ്പ് നൽകണമെന്ന മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗിന്റെ അഭിപ്രായത്തെയും തിവാരി അപലപിച്ചു

പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു

ഭാരോദ്ധഹനത്തിൽ കിരൺ മറാത്തെ അഭിഷേക് നിപ്പാനെ എന്നിവരാണ് മഹാരാഷ്ട്രയ്ക്കുവേി സർണ്ണം നേടിയത് മേളയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ലോൺ ബൌൾസ് മത്സരങ്ങളിൽ ആതിഥേയരായ അസം അഞ്ച് സ്വർണ്ണം നേടി

അയേലെ അബ്ഷെ റോയും ബിർഹാനു തെഷോമിയുമാണ് ര ും മൂന്നും സ്ഥാനത്തെത്തിയത്

ഇന്റർ നാഷണൽ എലൈറ്റ് ഫുൾ മാരത്തോൺ വനിതാ വിഭാഗത്തിൽ എത്മീപ്പ്യയുടെ അമാനെ ബെരിസോ ഒന്നാമതായി ഫിനിഷ് ചെയ്തു

ബജ്റഗ് പുനിയയും രവികുമാർ ഓഫിയയും സ്വർണ്ണം നേടി

കൊറിയൻ സ്വദേശികളും മൂന്ന് നേപ്പാളി ടൂറിസ്റ്റ് ഗൈഡുകളും പോർട്ടർമാരും അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലെ ട്രക്കിങ്ങിനിടെ വെള്ളിയാഴ്ചയാണ് അപകടത്തിൽപ്പെട്ടത്